ജെ പി ആഹാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തുടങ്ങി

ജെ പിയുടെ സത്യഗ്രഹ പന്തലിന് സമീപം ആത്മഹത്യ ചെയ്തയാൾക്ക് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധമില്ലെന്ന് പൊലീസ് അറിയിച്ചു

ഡി

ജെ പി സമരപന്തലിന് സമീപം തീ കൊളുത്തി മരിച്ച വേണുഗോപാലൻ നായരോട് ആദരസൂചകമായി ബി ജെ പി ആഹ്വാനം ചെയ്ത പകൽ ഹർത്താൽ തുടങ്ങി വൈകീട്ട് ആറുവരെയാണ് ഹർത്താൽ ശബരിമല കർമസമിതിയും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ പരീക്ഷകളും സർവ കലാശാലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്

ജെ പിയുടെ സത്യഗ്രഹ പന്തലിന് സമീപം തീകൊ ളുത്തി ആത്മഹത്യ ചെയ്തയാൾക്ക് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധമി ല്ലെന്ന് പൊലീസ് അറിയിച്ചു വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് മുട്ടട സ്വദേശി വേണുഗോപാലൻ നായർ ആത്മഹത്യ ചെയ്തതെന്ന് മജിസ്ട്രേ റ്റിന് നൽകിയ മരണമൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പൊലീസ് കേന്ദ്ര ങ്ങൾ പറഞ്ഞു കടുത്ത വിഷാദരോഗിയായിരുന്നു ഇയാളെന്നും തീ കൊളു ത്തിയ ശേഷമുണ്ടായ വിഭ്രാന്തി മൂലമാണ് സമരവേദിക്ക് സമീപത്തേക്ക് ഇയാൾ ഓടിയതെന്നും തിരുവനന്തപുരത്ത് പൊലീസ് വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കി ഇയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും അവർ പറഞ്ഞു

ജെ പിയുടെ ഇന്നത്തെ ഹർത്താലാഹ്വാനം ശബരിമല വിഷയത്തിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ കഴിയാത്തതിലെ വിഷാദം മൂലമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു ശബരിമലയിലും മറ്റിടങ്ങളിലും അക്രമമുണ്ടാക്കി പൊലീസിനെ പ്രകോപിപ്പിച്ച് സ്ള്ഷത്തിലൂടെ ബലി ദാനികളെ സൃഷ്ടിക്കാനായിരുന്നു ബി ജെ പിയുടെ ശ്രമമെന്ന് മന്ത്രി തിരു വനന്തപുരത്ത് പറഞ്ഞു ഗവൺമെന്റിന്റെ സമയോചിതമായ ഇടപെടലും പൊലീസിന്റെ സംയമനവും മൂലം അത്തരം പ്രശ്നങ്ങളുണ്ടായില്ല ഇരുചക്ര വാഹനം മറിഞ്ഞ് മരിച്ച പന്തളം സ്വദേശി ശ്രീവദാസനെ ബലിദാനിയായി ചിത്രീകരിച്ചതുപോലെ വേണുഗോപാലൻ നായരെയും രക്തസാക്ഷിയാ ക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഹർത്താലിന് ആഹ്വാനം നൽകിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

എമാർ നിയമസഭയിൽ തുടങ്ങിയ സമരം യു ഡി എഫ് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ല കളിൽ കലക്ടറേറ്റുകൾക്ക് മുന്നിലും യു ഡി എഫ് സത്യഗ്രഹം സംഘടി പ്പിക്കും ജനുവരി ഒന്നിന് ഒരുവിഭാഗം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വ ത്തിൽ ഗവൺമെന്റ് ചെലവിൽ രൂപീകരിക്കുന്ന വനിതാ മതിൽ വർഗീയ മതിലാണെന്നും അത് ജനങ്ങൾതന്നെ പൊളിക്കുമെന്നും ചെന്നിത്തല തിരു വനന്തപുരത്ത് പറഞ്ഞു

ഈ ഉത്തരവാദിത്വം സാഹിത്യമേഖല ഏറ്റെടുക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവോത്ഥാനമൂല്യ സംരക്ഷണത്തിന്റെ ഭാഗ മായി നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ ചേർന്ന സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

പുരുഷാധിപത്യത്തിന്റെ വിശ്വരൂപമാണ് ഇപ്പോൾ പ്രകടമാകുന്നത് പരിഷ്കൃത സമൂഹമായ കേരളത്തിൽ നിന്ന് സ്ത്രീവിരുദ്ധമായ ശബ്ദമുയരുന്നത് പുറം ലോകത്തിന് ഞെട്ടലുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വിലയിരുത്തി

രുമ്പ്പെട്ടിര പ്രളയംമൂലം ഓണവും റംസാനും ആഘോഷിക്കാൻ കഴിയാതെപോയ മലയാളികൾക്ക് ക്രിസ്മസ് ആഹ്ലാദത്തിന്റെ അവസരമായി മാറണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സപ്പൈകൊ ക്രിസ്മസ് മെട്രോഫെയർ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവ നന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നിർവഹിച്ച് സംസാരിക്കുകയാ യിരുന്നു മന്ത്രി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങ ളിൽ ഫെയറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു പ്രളയവും പെട്രോ ളിയം വില വർദ്ധനയും ഉണ്ടായിട്ടും അരിയുടെയും അവശൃ സാധനങ്ങളു ടെയും വില കുറയ്ക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് ചടങ്ങിൽ അധ്യക്ഷ നായിരുന്ന മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു

സി സി പ്രസിഡന്റുമായ കമൽനാഥിനെ തീരുമാനിച്ചു മണിക്കൂറുകളോളം പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായും സോണിയഗാന്ധി ഉൾപ്പെടെ നേതാക്കളുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കമൽനാഥിനെ മുഖ്യ മന്ത്രിയാക്കാൻ തീരുമാനമായത്

സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തീരുമാനം അതിനുശേഷം ഉണ്ടാകും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മുഖ്യമന്ത്രി മാരെ തെരഞ്ഞെടുക്കാൻ ചർച്ചകൾ തുടരുകയാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനാണ് മുൻതൂക്കം ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ കാര്യ ത്തിൽ രാഹുൽഗാന്ധി തീരുമാനമെടുക്കുമെന്ന് എ ഐ

സി നിരീക്ഷകൻ മല്ലികാർജ്ജുൻ ഗാർഗെ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ജെ പി വിശകലനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹി യിൽ അറിയിച്ചു മധ്യപ്രദേശിൽ കടുത്ത പോരാട്ടമാണുണ്ടായതെന്നും ബി

പിയുടെ പ്രകടനം മെച്ചപ്പെട്ടതായിരുന്നുവെന്നും അദ്ദേഹം വിലയിരുത്തി കർഷകരുടെ ദുരിതം എല്ലാ ഗവൺമെന്റുകളും നേരിടുന്ന പ്രശ്നമാണെന്നും അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു

ജെ

ഫെബ്രുവരിയിൽ പട്ടികവർഗ മോർച്ചയുടെയും ഒ

സി മോർച്ചയുടെയും യോഗങ്ങളും ചേരും

ജിദ്ദയിൽ ഇന്നലെ കരാറിൽ കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വിയും സൌദി ഹജ്ജ് ഉംറ മന്ത്രി മുഹമ്മദ് സലെ ബിൻ തഹീർ ബെൻടെനുമാണ് കരാറിൽ ഒപ്പിട്ടത്

എം റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കു ന്നതിന് ലേല നടപടികൾ ആരംഭിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകി

രുവെട്ടിരു ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പെർത്തിൽ ആരംഭി ക്കും ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം

ഭുവനേശ്വ റിൽ നെതർലന്റ് സാണ് ഇന്ത്യയുടെ കിരീടമോഹം തകർത്തത് കാർട്ടറിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിന് നെതർലന്റ്സ് ഇന്ത്യയെ തോൽപ്പിച്ചു മറ്റൊരു കളിയിൽ ബെൽജിയം ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പി ച്ചു നാളെ ആദ്യ സെമിയിൽ ഇംഗ്ലണ്ട് ബെൽജിയത്തെയും ഓസ്ട്രേലിയ നെതർലന്റ് സിനെയും നേരിടും

എസ് എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ്

ബംഗ ളുരുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എ

കെ കൊൽക്കത്തയെ തോൽപ്പിച്ചത് രുവെട്ടിരു കണ്ണൂർ സർവകലാശാല ഇന്റർ കൊളീജിയറ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് മുന്നാട് പീപ്പിൾസ് കോളജ് തുടർച്ചയായ മൂന്നാംതവണയും ചാമ്പ്യൻമാരായി

രദ്ദേഷ്ടങ് കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കൽ സമയബ ന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവന ന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു

രണ്ടു വർഷത്തിനകം പ്രദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് രുവെട്ടറു വനിതാ മതിൽ സംഘാടക സമിതി രൂപീകരണത്തിന് വിളിക്കുന്ന യോഗ ങ്ങളിൽ കോൺഗ്രസ് നേതാക്കളോ പ്രതിനിധികളോ പങ്കെടുക്കില്ലെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു ശബ രിമല യുവതീ പ്രവേശനത്തിൽ ഗവൺമെന്റ് വിശ്വാസികളിൽ നിന്നും ഒറ്റ പ്പെട്ടതായും അത് മറികടക്കാനാണ് ജനുവരി ഒന്നിലെ വനിതാ മതിലെന്നും അദ്ദേഹം പറഞ്ഞു

പിയും അടൂർ പ്രകാശ് എം

എയും പത്തനംതിട്ടയിൽ അറിയിച്ചു സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും രക്ഷാധികാരിക ളാക്കി നിയമിച്ചത് അനുവാദം ചോദിക്കാതെയാണെന്നും വനിതാ മതിലു മായി സഹകരിക്കില്ലെന്നും അവർ വ്യക്തമാക്കി

പിയുടെയും സി

എമ്മിന്റെയും നീക്കത്തെ ചെറുത്ത് തോൽപ്പി ക്കാൻ ദളിത് പിന്നാക്ക ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് അണിനിരക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പ്രളയ ത്തിൽ വീടുകളും ജീവിതോപാധികളും നഷ്ടപ്പെട്ടവർക്ക് മുസ്ലീംലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ധനസഹായം പത്തനംതിട്ടയിൽ വിതരണം ചെയ്യു കയായിരുന്നു മജീദ് രുട്ടിട്ട്ട്ട്ട്ട്ട്ട്ട ശബരിമല ദർശനത്തിനെത്തുന്ന കൊച്ചുകുട്ടികൾ കൂട്ടം തെറ്റിപ്പോയാൽ കണ്ടെത്താനായി പൊലീസ് നടപ്പാക്കിയ ടാഗിങ് സംവിധാനം പുനരാരംഭി ച്ചു രക്ഷാകർത്താവിന്റെ പേരും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ ടാഗ് കുട്ടികളുടെ കൈയിൽ പൊലീസ് കെട്ടിക്കൊടുക്കും പമ്പയിലെ പൊലീസ് കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് പ്രത്യേക പൊലീസ് സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് രുട്ടിട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ തമ്പടിച്ചിരി ക്കുന്ന കാട്ടാനകളെ തുരത്താൻ ശ്രമം തുടരുന്നു കണ്ണൂർ വയനാട് പാല ക്കാട് ജില്ലകളിൽ നിന്ന് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വ ത്തിലാണ് നടപടി